സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് ഓരോ മണ്ഡലത്തിലേയും അഞ്ച് വിവി പാറ്റ് മെഷീനുകൾ തെരഞ്ഞെടുത്ത് വിവി പാറ്റ് സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി

സായുധ സേനയിലേയും കേന്ദ്ര പോലീസ് സേനയിലേയും അംഗങ്ങളുടെയും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടേയും അനുബന്ധ ജീവനക്കാരുടേയും പോസ്റ്റൽ വോട്ടുകളും ഇതിൽ ഉൾപ്പെടും

ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാവുന്ന വൻ പരാജയത്തെക്കുറിച്ചുള്ള ആശങ്കയും നൈരാശ്യവും മൂലം പ്രതിപക്ഷം ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയും കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയുമാണെന്ന് ശ്രീ

പ്രതിപക്ഷത്തോട് ബിജെപി അദ്ധ്യക്ഷൻ ട്വിറ്ററിലൂടെ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ കോൺഗ്രസ് വക്താവ് അഭിഷേക് മനു സിംഘ്വി അറിയിച്ചതാണിക്കാര്യം വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അഞ്ച് ശതമാനം വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യമാണ് കമ്മീഷൻ നിരസിച്ചത്

പിമാർക്കുള്ള താമസസൌകര്യം വെസ്റ്റേൺ കോർട്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിലേക്കും തലസ്ഥാന നഗരിയിലെ വിവിധ സംസ്ഥാന ഭവനുകളിലേക്കും മാറ്റിയതായി ലോകസഭ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ പറഞ്ഞു

മാരെ താത്കാലികമായി ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്ന നിലവിലെ സമ്പ്രദായം നിർത്തലാക്കിയതിനെ തുടർന്നാണിത്

മേഖലയിൽ ഭീകൃർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പ്പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിട്ടെ സുരക്ഷാ സേനയ്ക്കുനേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

മുൻകരുതലെന്ന നിലയിൽ കുൽഗാമിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു

അതിർത്തി രക്ഷാ സേനയുടെ പതിനേഴാമത് രൂപീകരണ വാർഷിക സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ വ്യോമസേനയുടെ ബ്രഹ്മോസ് മിസൈലും ഇന്ന് വിജയകരമായി പരീക്ഷിച്ചു

ചുഴലിക്കാറ്റ് പ്രളയം തുടങ്ങിയവയെകുറിച്ചുള്ള മുന്നറിയിപ്പ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും നൽകാനാവും

വിക്ഷേപണം സുഗമമായിരുന്നുവെന്നും മിസൈൽ അതിന്റെ ശരിയായ സഞ്ചാരപഥത്തിൽ തന്നയാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വാർത്താകുറിപ്പിൽ അറിയിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഗുപ്തയ്ക്കെതിരായി വ്യക്തമായ തെളിവുകൾ ഉള്ളതായി എൻഫോഴ്സ്മെന്റ് വിഭാഗം കോടതിയെ അറിയിച്ചു

മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്ന് സ്വമേധയാ ഇടപെട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പൊലീസ് എന്നിവരിൽ നിന്നും നാലാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലെ കന്നൌജിൽ പൊലീസ് കസ്റ്റഡിയിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പൊലീസ് മേധാവിക്ക് നോട്ടീസ് അയച്ചു

ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ തുടച്ചു നീക്കാൻ സൈന്യത്തിന് അധികാരം നൽകിയിട്ടുണ്ട് അതിനിടെ രാജ്യത്ത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഭാഷയ്ക്കും മതത്തിനും അതീതമായി ഒരു പൊതുവിദ്യാലയ സമ്പ്രദായം പ്രാവർത്തികമാക്കുമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റിനൽ വിക്രമസിംഘേ പറഞ്ഞു

മൂന്ന് മത്സര പരമ്പരയിൽ ജിൻമിയോണിൽ ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യൻ വനിതകൾ ദക്ഷിണകൊറിയയെ കീഴടക്കിയത്

എല്ലാ താരങ്ങൾക്കും മെഡൽ ഉറപ്പു വരുത്തിയിട്ടുണ്ട്

ഉപഭോഗത്തിലും ആഭ്യന്തര നിക്ഷേപത്തിലും തുടർച്ചയായി ഉണ്ടാകുന്ന വർദ്ധന ഈ ലക്ഷ്യം വേഗമാക്കും ലോക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവിട്ട കണക്കുകൾ യാഥാർത്ഥൂമാകില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു